രാജ്യത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ അഭയം ലഭിക്കാത്ത തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നട പടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഡൽഹിയിൽ സംഘടിപ്പിച്ച ജാഗരൺ ഫോറത്തിൽ സംസാ രിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അർട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട നോട്ട് അസാധുവാക്കൽ സമ്പദ്ഘടനയെ വൃവസ്ഥാപിതമാക്കാനും നികുതി നൽകുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കാരണമായതായി ധന മന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു നാലര വർഷത്തെ എൻ

പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അനുസൃതമായി മെഡിക്കൽ വിദ്യാഭ്യാസം നവീകരിക്കണമെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു ന്യൂഡൽഹി യിൽ എയിംസ് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു വെങ്കയ്യ നായിഡു രുട്ടിട്ടിരു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേ രയുടെ മൂന്ന് ബിസിനസ് പങ്കാളികളുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ പരിശോധന നടത്തി പ്രതിരോധ ഇടപാടുകളിൽ അനർഹമായി കമ്മീഷൻ സ്വീകരിക്കൽ വിദേശത്ത് അനധികൃത സ്വത്ത് സമ്പാദിക്കൽ തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നാണ് പരിശോധന ഡൽഹിയിലും ബംഗളുരുവിലുയമായി നടന്ന പരിശോധനയിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പേരുകൾ എൻഫോഴ്സ്മെന്റ് വെളിപ്പെടുത്തിയിട്ടില്ല റെയ്ഡ് കുടിപ്പകയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട സാംസ്കാരിക കൂട്ടായ്മകൾ പ്രസരിപ്പിച്ച മാനവിക മൂല്യങ്ങൾ കൂടി യാണ് മലയാളികൾക്ക് പ്രളയകാലത്ത് ഐക്യവും ഒത്തൊരുമയും സാധ്യ മാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ആഘാതാനന്തര മാനസികാവസ്ഥയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് കലാപ്രവർത്തനം വലിയ തോതിൽ ഉപകരി ക്കും ഇതെല്ലാം അംഗീകരിച്ചാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചലച്ചിത്രമേ ളക്ക് തടസ്സമാവരുത് എന്ന് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യനെന്ന ഒറ്റ പരിഗണനയേ പാടുള്ളൂ

സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ മജീദ് മജീദിക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു

ചടങ്ങിൽ ബംഗാളി സംവിധായകൻ ബുദ്ധദേവ്ദാസ് ഗൂപ്ത നടിയും സംവിധായകയുമായ നന്ദിതാ ദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഫെസ്റ്റി വൽബുക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മേയർ വി കെ പ്രശാന്തിന് നൽകി പ്രകാശനം ചെയ്തു അസ്ഗർ ഫർഹാദിയുടെ എവരിഡി നോസ് ആയിരുന്നു ഉദ്ഘാടന ചിത്രം

ഇന്ന് രാവിലെ അദ്ദേഹ്ം കണ്ണൂർ ഡി

സി സെന്റർ സന്ദർശിക്കും

ഇന്നലെ രാജ്ഭവനിൽ ഗവർണറെ സ്ന്ദർശിച്ച ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ഡോക്ടർ മാർട്ടിൻ നേ അറിയിച്ചതാണിത് സംസ്ഥാനത്ത് കാലാവസ്ഥാ പ്രകൃതിദുരന്ത് നിരീക്ഷണ പുനരുദ്ധാരണ കേന്ദ്രം ആരംഭി ക്കുന്നതിനും ആസൂത്രണവും ഇ ഗവേണൻസും ശക്തിപ്പെടുത്തുന്നതിനു മായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ വായ്പ അനുവദി ക്കുന്നതെന്ന് അംബാസഡർ അറിയിച്ചു സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖല യുടെ പുരോഗതിക്കായി സഹകരിക്കാനും അംബാസഡർ സന്നദ്ധത അറി യിച്ചു രുവെട്ടിരു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം നാളെ ഉദ്ഘാടനം ചെയ്യും

രാവിലെ ആറുമണിക്ക് ആദ്യ വിമാന ത്തിലെ യാത്രക്കാർക്ക് മട്ടന്നൂർ സഹകരണ ബാങ്ക് പരിസരത്ത് സ്വീകര ണം നൽകും

ഐ പി ലോഞ്ചിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും എ

എം ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രനും നിർവഹി ക്കും ഫോറിൻ എക്സ്ചേഞ്ച് കൌണ്ടറിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈ ലജ നിർവഹിക്കും മലബാർ കൈത്തറി ഇൻസ്റ്റലേഷൻ അനാച്ഛാദനം മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും

പലവേദികളിലും മത്സരങ്ങൾ രാത്രിവൈകിയാണ് അവസാനിച്ചത്

മേള നാളെ സമാപിക്കും

അർഹതപ്പെട്ട പരമാവധി പേർക്ക് പട്ടയം നൽകു മെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വിവേകപൂർവ മായ നടപടി ഉണ്ടാകണമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറി ൽ നടന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു

തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യം പട്ടയം ലഭിക്കുക

കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പൂനെ സിറ്റി എഫ്

ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അത്ലറ്റികോ ഡി കൊൽക്ക ത്തയെ നേരിടും രുവെട്ടെടു ചെന്നൈയിൽ തമിഴ്നാടിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള ത്തിന് ബാറ്റിംഗ് തകർച്ച

വൈകീട്ട് അഞ്ചിന് കൊൽക്കത്തയിലാണ് മത്സരം

കാസർകോട് ജില്ലാ കബഡി അസോസിയേഷൻ നേതൃത്വത്തിലാണ് മത്സരം

ഇന്ന് പുലർച്ചെ തന്ത്രി കണ്ഠ രര് രാജീവരരുടെ കാർമികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ ത്തോടെ പതിവ് പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും തുടക്കമായി ഇല വുങ്കൽ മുതൽ സന്നിധാനം വരെ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്ന് അർദ്ധ രാത്രി അവസാനിക്കും മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായാണ് നിരോധനാജ്ഞ ആദ്യം പ്രഖ്യാപിച്ചത് പിന്നീട് ഇത് നാലുതവണ ദീർഘിപ്പി ക്കുകയായിരുന്നു

സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന നീണ്ടകര പുത്തൻതോപ്പിൽ പടിഞ്ഞാറ്റതിൽ സ്വദേശികളായ ഫ്രാൻസിസ് ജോസഫ് സിജിൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ ഒന്നേമുക്കാലോടെ ദേശീയപാതയിലായിരുന്നു അപകടം

കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദർശാണ് മരിച്ചത് സ്കൂൾ ഗ്രൌണ്ടിലെ കിണർ മൂടുന്നതിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പി സുരേഷ് ഉത്തരവിട്ടു

ഇടുക്കി ജില്ലയിലെ വ്യവസായ മേഖലയുടെ വികസനത്തിനായി വിവിധ പ്രദേശങ്ങളിൽ ലീഡ് ബാങ്കായ യൂണിയൻ ബാങ്ക് ഇതര ബാങ്കുകളുടെ സഹകരണത്തോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കായ് സംഘടിപ്പിച്ച വായ് പാമേളയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുമ്പ്പെട്ടിര ട പ്രളയത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസ ത്തിൽ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു പ്രളയ ദുരന്തത്തിൽ വീട് പൂർണ്ണമായി നഷ്ട പ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് സഹകരണവകുപ്പ് ആവിഷ്കരിച്ച കെയർ ഹോം പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരിയിൽ ആരം ഭിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു കെയർ ഹോം പദ്ധതിയുടെ ജില്ലാ തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

ഘട്ടംഘട്ടമായി ഈ പഞ്ചായത്തുകളിലും ഡിസ്പെൻസറികൾ സ്ഥാപിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു പാലക്കാട് തേങ്കുറുശ്ശി കല്ലേങ്കാട് ഹോമിയോ ഡിസ് പെൻസറി ഉദ്ഘാടനം ചെയ്തു സംസ്ാരിക്കുകയായിരുന്നു അവർ

കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ത്രി കെ

കല്ലടിക്കോട് കുടുംബ ആരോഗ്യകേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു

എം സ്റ്റേഷൻ ആലപ്പുഴയിൽതന്നെ നിലനിർത്തുമെന്ന് കെ

ഇവിടെ അനുവദിച്ച എഫ് എം സ്റ്റേഷൻ രാജസ്ഥാനിലേക്ക് മാറ്റാനുള്ള തീരുമാനം കേന്ദ്ര വാർത്താവിതരണ മന്ത്രിക്കും ആകാശവാണി ചീഫ് എക്സി ക്യൂട്ടീവ് ഓഫീസർക്കും കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മരവിപ്പി ച്ചതായി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു